തിരിച്ചുപിടിക്കണമെന്ന് പ്രധാനമന്ത്രി കോവിഡിനെതിരായ പോരാട്ടവും ഒപ്പം കൊണ്ടുപോകണമെന്നും ശ്രീ നരേന്ദ്ര മോദി

വർധിപ്പിക്കാൻ കേന്ദ്ര തീരുമാനം

ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രത്യേക യോഗം വിളിച്ചു

കോവിഡിനെതിരായ പോരാട്ടവും ഒപ്പം കൊണ്ടുപോകണം

ഇന്ത്യയെ ഉയർന്ന വളർച്ചാ പാത്മയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദൃഢനിശ്ചയം ഉൾച്ചേർക്കൽ ണിക്ഷേപം അടിസ്ഥാന സൌകര്യങ്ങൾ നവീന ആശയങ്ങൾ എന്നിവ് ്പ്രധാനമാണ്

അൺലോക്കിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വളർച്ച തിരിച്ചുപ്പിട്ടിക്കുന്നത് ആരംഭിച്ചു കഴിഞ്ഞതായും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

ഭൌതിക വിഭവങ്ങൾക്കു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മാത്രമല്ല മാനവവിഭവശേഷി സംരക്ഷിക്കാൻ ശ്രമിച്ചതായും അദ്ദേഹം പറഞ്ഞു

സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കുള്ള എംഎസ്എംഇ അവസരങ്ങൾ പരമാവധി വർധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സർക്കാരിന്റെ തീരുമാനങ്ങൾ മനസിലാക്കാൻ ആഗോള സാഹചര്യം ഓരോരുത്തരും മനസ്സിലാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഇന്ത്യയുടെ വികസനപന്ഥാവിൽ തെലങ്കാന മൂലൃവത്തായ സംഭാവനകുൾ ന്ൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആന്ധ്രാപ്രദേശിലെ ജനിങ്ങളുടെ കഠിനപ്രയത്നവും ധൈരൃവും ഈ മണ്ണിന്റെ സംസ്ക്കാരത്തീന്റെ പര്യായങ്ങളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഈ തുക ശമ്പളം വാടക ഉല്പന്നങ്ങളുടെ പുനരുദ്ധാരണം എന്നിവയ്ക്ക് സഹായപ്രദമാകും

ജലാശ്വ ഇന്ത്യയിലെത്തി വിശദവിവരങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താവിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

വൈകീട്ട് ദുബായിൽ നിന്നും രാത്രി അബുദാബിയിൽ നിന്നും പ്രവാസികളുമായി വിമാനങ്ങൾ കണ്ണൂരിലെത്തും

ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ മൃഹ്ാരാഷ്ട്രയിൽ കനത്ത മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്

മൂന്ന് ട്ടീമീള്ള് മുംബൈയിലും രണ്ട് ടീമിനെ പാൽഗഡിലുമാണ് ചുഴലിക്കാറ്റിന്റെ പ്രഭാവമുണ്ടാകുമെന്നതിന്റൽ താനെ റായ്ഗഡ് രത്ന്ഗിരി എന്നിവിങ്ങളിലും സേന്യെ വിന്യസിച്ചിട്ടുണ്ട്

ദുരന്ത നിവാരണ അതോറിട്ടി കാലാവസ്ഥാ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ സംബന്ധിച്ചു

ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും

ജെൽ ക്രാഫ്റ്റ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് യൂണിറ്റ് നിർമ്മിച്ചത്